എം മതേതരത്തിന് വേണ്ടിയും തീവ്രവാദത്തിനെതിരെയും ശക്ത മായ നിലപാടെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പാലാ ഉപതെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരി ടുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി

എ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും

ഓണാഘോഷത്തിൽ ഒരു കുറവും വരു ത്തില്ലെന്ന് മന്ത്രി എ കെ ബാലൻ

മതേതരത്വത്തിന് വേണ്ടിയും തീവ്രവാദത്തിനെതിരെയും ശക്ത മായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് നേടിയെടുത്ത മികവ് നിലനിർത്താൻ ശ്രമം വേണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് എപ്പോഴും ജനസൌഹൃദമായിരിക്കണമെന്നും കുറ്റകൃത്യങ്ങൾ ക്കെതിരെ വിട്ടുവീഴ്ച യില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും പിണറായി പറഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും മാഫിയകളെ നേരിടുന്നതിന് പ്രത്യേക സംവിധാനം വേണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു

ലാന്ററിന്റെ ഭ്രമണപഥത്തിൽ രണ്ട് തവണ കൂടി മാറ്റം വരുത്തി ചന്ദ്രനോട് ഏറ്റവും അടുപ്പിക്കുന്ന ദൌത്യം അടുത്ത ദിവസങ്ങളിൽ നടത്തും ശനിയാഴ്ച പുലർച്ചെയോടെ ലാന്റർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറക്കാനാണ് തീരുമാനം

ഇതിനുശേഷം ഒന്നോ രണ്ടോ മണി ക്കൂറിനകം ചന്ദ്രോപരിതലത്തിന്റെ ചിത്രങ്ങളും പ്രത്യേകതകളും ഐ

ഒ ആസ്ഥാനത്തേക്ക് അയക്കും ഒർബിറ്ററിൽ നിന്ന് ലാന്റെ വേർപെടുത്തുന്ന ജോലി ശ്രമകരമാണെങ്കിലും ആശങ്ക യൊന്നുമില്ലെന്ന് ഇസ്രോ കേന്ദ്രങ്ങൾ ബെങ്കലൂരുവിൽ അറിയിച്ചു

പാലാ ഉപതെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരി ടുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി പറഞ്ഞു

ജെ ജോസഫ് ഉൾപ്പെടെ എല്ലാ നേതാക്കളും സഹ കരിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് വൃക്തമാക്കി നിയമപര മായ പ്രശ്നങ്ങൾ പരിഹരിച്ചശേഷമേ രണ്ടില ചിഹ്നത്തിൽ തീരു മാനമുണ്ടാകൂവെന്നും അദ്ദേഹം അറിയിച്ചു ജോസ് കെ മാണിയും യു

എഫ് സ്ഥാനാർത്ഥിയും പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പാലാ നിയമസഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള ഇന്നലെ കോഴിക്കോട്ട് അറിയിച്ചിരുന്നു സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരളാ കോൺഗ്രസ് എമ്മിലെ ജോസ് ടോമിനെ പ്രഖ്യാപിച്ചെങ്കിലും ചിഹ്നം സംബന്ധിച്ച തർക്കത്തിന്റെ അലയൊലി അടങ്ങിയില്ല പാലായിൽ കെ എം മാണിയാണ് ചിഹ്നമെന്ന് സ്ഥാനാർത്ഥി ജോസ് ടോം പറഞ്ഞു സ്ഥാനാർത്ഥി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടില ചിഹ്നത്തെക്കുറിച്ച് ആലോചിക്കേണ്ട തില്ലെന്ന് പി ജെ ജോസഫ് ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഉടനെ വ്യക്തമാക്കി തീരുമാനമാകുമെന്ന് യുഡിഎഫ് നേതാക്കൾ വിശദീകരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പു പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഭരണങ്ങാനം കടനാട് കൊഴുവനാൽ പഞ്ചായത്തുകളിൽ കൺവെൻഷൻ നടക്കുന്നു ഓണത്തിന്റെ വരവറിയിച്ച് പ്രശസ്തമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു കലാരൂപങ്ങൾ പ്ലോട്ടുകൾ പരമ്പരാഗത കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു

മന്ത്രി എ

പ്രകൃതി ദുരന്തം ഉണ്ടായെങ്കിലും ഇത്തവണ സംസ്ഥാ നത്ത് ഓണാഘോഷത്തിന് ഒരുകുറവും വരുത്തില്ലെന്ന് മന്ത്രി പറ ഞ്ഞു

സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഓണത്തിന് മുമ്പ് വിത രണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ അത്താഘോഷ പരിപാടികൾ ദേവസ്വം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു തൃക്കാക്കരയ പ്പൻ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു ആഘോഷങ്ങൾക്കപ്പുറം ഓണം ഉയർത്തുന്ന മാനവികത സമൂഹത്തിന് പകർന്ന് നൽകണമെന്ന് മന്ത്രി ഡോ

സപ്ലൈകോ ഓണം മേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രളയത്തിൽ ദുരിതം ബാധിച്ചവരെ കൂടെ നിർത്താൻ നമുക്ക് കഴിയണം പ്രളയ മേഖലയിൽ സപ്പൈകോ പ്രത്യേക ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഉബൈദുള്ള എം

ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ ആദ്യവിൽപ്പന നടത്തി

എഫ് ജില്ലാക്കമ്മറ്റികളുടെ ആഭിമുഖ്യത്തിൽ നാളെ സെക്രട്ടേറിയറ്റിനും കലക്ടറേറ്റുകൾക്കും മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും പ്രളയാനന്തര പുനരധിവാസ പ്രവർത്തനത്തിൽ ഗവൺമെന്റ് പൂർണമായും പരാജയപ്പെട്ടെന്നും പി

സി യുടെ വിശ്വാസ്യത തകർത്തുവെന്നും ആരോപിച്ചാണ് രാപ്പകൽ സമരം ഗവൺമെന്റിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സമരത്തിൽ യു ഡി

തൃശൂർ ജില്ലയുടെ രാപ്പ കൽ സമരം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് കോട്ടയം വയ നാട് ജില്ലകളുടെ സമരം പിന്നീട് തീരുമാനിക്കും കൊച്ചി മെട്രോയുടെ മാഹാരാജാസ് കോളേജ് തൈക്കൂടം വാണിജ്യ സർവീസ് മറ്റന്നാൾ ആരംഭിക്കും

പേട്ട എസ് എൻ ജംഗ്ഷൻ പാതയുടെ നിർമ്മാണോദ്ഘാടനവും ജല മെട്രോ പദ്ധതിയുടെ ആദ്യ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും മുഖ്യ മന്ത്രി നിർവഹിക്കും കേന്ദ്ര നഗരകാര്യമന്ത്രി ഹർദീപ്സിംഗ് പുരി മന്ത്രി എ കെ ശശീ ന്ദ്രൻ എന്നിവരും എം പി മാരും എം

എ മാരും കൊച്ചി മേയറും ചടങ്ങിൽ പങ്കെടുക്കും

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടേറെ കോളേജുകളിൽ ഇടിമുറികളുണ്ടെന്ന് ജസ്റ്റിസ് പി

മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് എറ ണാകുളം മഹാരാജാസ് തിരുവനന്തപുരം ആർട്സ് കോളേജ് എന്നിവടിങ്ങളിൽ ഇടിമുറികളുള്ളതായി വിദ്യാർത്ഥികൾ പരാതി പ്പെട്ടുവെന്ന് കമ്മീഷൻ അറിയിച്ചു

ബിറ്റ്കോയിൻ ഇടപാടുകൾ പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണസംഘത്തെ നിയോഗിക്കുമെന്ന് ഡി ജി

സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥ രടങ്ങുന്നതായിരിക്കും സംഘമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ബിറ്റ്കോയിൻ ഇടപാടിൽ മലപ്പുറം സ്വദേശിയെ കൊല പ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഡെറാഡൂണിൽ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങില്ലെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ചാരവൃത്തിയാരോപിച്ച് പാക്സൈനിക കോടതി വധശി ക്ഷയ്ക്ക് വിധിച്ച കുൽഭൂഷൺ ജാദവിനെ ഇന്ത്യൻ നയതന്ത്രപ്ര തിനിധിക്ക് ഇന്ന് സന്ദർശിക്കാമെന്ന പാക്കിസ്ഥാന്റെ വാഗ്ദാനം ഇന്ത്യ സ്വീകരിച്ചു

കഴിഞ്ഞമാസം രണ്ടിന് തടസ്സമില്ലാത്ത രീതിയിൽ നയതന്ത്രസ ഹായം കുൽഭൂഷണ് നൽകണമെന്ന് ഇന്ത്യ പാക്കിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു

എക്സ് മീഡിയ കേസിലെ സി ബി ഐ അറസ്റ്റ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി പി

അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിരുന്നു ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജ യത്തിനടുത്തേക്ക്

വിദ്യാർഥികൾ ഫിറ്റ്നസ് നേടാൻ കൂടുതൽ ശ്രമിക്കണമെന്ന് ധ്യാൻചന്ദ് അവാർഡ് ജേതാവ് മാനുവൽ ഫ്രെഡറിക് പറഞ്ഞു കോഴിക്കോട് ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനത്ത് രണ്ടുദിവസം കൂടി സാമാന്യം ശക്തമായ മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് കാസർകോട് ഇടുക്കി ജില്ലകളിൽ കനത്ത മഴ പെയ്തേക്കു മെന്ന നിഗമനത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും നാലാം തിയ്യതി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരിക്കും ഇന്ന് ലോക നാളികേര ദിനം തെങ്ങുകൃഷിയിൽ കേരളത്തെ ഒന്നാമതെത്തിക്കുന്ന സംരംഭത്തിന് ഈ ദിനം തുടക്കം കുറിക്കു മെന്ന് മന്ത്രി വി എസ് സുനിൽ കുമാർ തൃശൂരിൽ പറഞ്ഞു

കേരകൃഷിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഗവൺമെന്റ് നാളി കേര വികസന കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്

പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിലെ നാല് പ്രതി കൾക്കായി വിജിലൻസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ മൂവാറ്റു പുഴ വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് ഉൾപ്പെടെ മൂവാറ്റുപൂഴ സബ്ജ യിലിൽ കഴിയുന്ന പ്രതികളുടെ റിമാന്റ് കാലാവധി ഇന്ന് അവ സാനിക്കും പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാ ടകരുടെ അവസാന സംഘം കരിപ്പൂരിൽ നാളെ തിരിച്ചെത്തും അതേസമയം നെടുമ്പാശ്ശേരിയിൽ ഹാജിമാരുടെ മടക്കയാത്ര ഇന്നലെ പൂർത്തിയായി